ബാങ്കുകളിൽ ആർ ടി ജി എസ് എൻ

പാനൽ ഡ്രൈവർമാരെ പിരിച്ചു വിട്ടതോടെ കെ എസ് ആർ ടി

അന്താർാഷ്ട്ര വിപണി നിരക്ക് കുറഞ്ഞ സാഹചര്യത്തിലാണ് ഇത് പുതുക്കിയ നിരക്ക് ഇന്നു മുതൽ പ്രാബലൃത്തിൽ വരുമെന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ വാർത്താക്കുറിപ്പിൽ വൃക്തമാക്കി

സുങ്കിർണ്ണമായ പരോക്ഷനികുതി സംവിധാനം എടുത്തുകളഞ്ഞതോർട്ടു ലളിതവും സുതാര്യവുമായ നികുതി പിരിവ് സംവിധാനം ന്ടില്പിൽ വന്നു

ഒക്ടോബർ ഒന്ന് മുതൽ ഈ രീതി നിർബന്ധിതമാക്കാനാണ് ധനമന്ത്രാലയത്തിന്റെ പദ്ധതി ചരക്ക് സേവന നികുതി സംവിധാനത്തിന്റെ രണ്ടാം വാർഷികത്തിന്റെ ഭാഗമായി ഇന്ന് ഡൽഹിയിൽ നടക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി അനുരാഗ് താക്കൂർ അധ്യക്ഷത വഹിക്കും

ടി സംബന്ധിച്ച് സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭകർക്കായുള്ള പുസ്തകത്തിന്റെ പ്രകാശനവും ചടങ്ങിൽ നടക്കും

എസ് ടി സംവിധാനം നടപ്പാക്കാൻ പ്രയത്നിച്ച ഉദ്യോഗസ്ഥരെ ചടങ്ങിൽ ആദരിക്കും ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇ

ടി ജി എസ് പണമിടപാട് സംവിധാനം ഇന്ന് മുതൽ സൌജനൃം ഇത്തരം പണമിടപാടുകൾക്ക് ചാർജ്ജുകൾ ഈടാക്കില്ലെന്ന റിസർവ്വ് ബാങ്കിന്റെ പ്രഖ്യാപനത്തെ തുടർന്നാണ് ഇത്

മേഖലയിൽ ർണ്ട് പുതിയ തേജസ് എക്സ്പ്രസ് ട്രെയിനുകൾ ആരംഭിക്കൂട്ട് ്ന്യൂഡൽഹി ചണ്ഡീഗഡ് ന്യൂഡൽഹി ലഖ്നൌ റൂട്ടുൿളിലാണ് പുതിയ സർവീസുകൾ നാലു ട്രെയിനുകൾ നീട്ടി ഡെറാഡൂൺ ന്യൂഡൽഹി നന്ദാദേവി എക്സ്പ്രസ് കോട്ട ജംഗ്ഷനിലേക്ക് നീട്ടി

ന്യൂഡൽഹി ലുധിയാന ശതാബ്ദി എക്സ്പ്രസ് ലോഹിയൻ ഖാസിലേക്കും ദീർഘിപ്പിച്ചു ചില ട്രെയിനുകളുടെ വേഗം കൂട്ടിയിട്ടുണ്ട്

തദ്ദേശീയരുമായുണ്ടായ സംഘർഷത്തിൽ ഇന്ത്യക്കാർക്ക് ആർക്കും പരിക്കില്ല പ്രാദേശിക ഭരണകേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കിയതായി വിദേശകാരൃസഹമന്ത്രി വി

കസാഖിസ്ഥാനിലെ ഇന്ത്യൻ എംബസിയുമായി നിരന്തരം ബന്ധപ്പെടുന്നതായും അദ്ദേഹം അറിയിച്ചു

ഐ ജി അപർണ കുമാർ വടക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ മൌണ്ട് ഡിനാലി കീഴടക്കി കൊടുമുടി കീഴടക്കുന്ന ആദ്യ ഗവൺമെന്റ് ഉദ്യോഗസ്ഥയാണവർ മൂന്നാമത്തെ ശ്രമത്തിലാണ് അപർണ ഈ നേട്ടം കൈവരിക്കുന്നത്

എസ് ഓഫീസറായ അവർ ഐ ടി ബി പി വടക്കൻ മേഖലയിൽ ഡി ഐ

തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ താമസിച്ച കെട്ടിടം സ്ഫോടനത്തിൽ തകർക്കുകയായിരുന്നു

ഒരാഴ്ച നീളുന്ന പരിപാടിയിൽ രാജ്യമെമ്പാടും വന സംരക്ഷണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് വൃക്ഷത്തൈകൾ നട്ടും ബോധവൽക്കരണ പരിപാടികൾ നടത്തിയുമാണ് വനമഹോത്സവം ആചരിക്കുന്നത്

എസ് ആർ ടി

ഇന്നും പ്രതിസന്ധി രൂക്ഷമാകുമെന്നാണ് റിപ്പോർട്ട് ഏറ്റവും കൂടുതൽ ഡ്രൈവർമാർ പുറത്തായ തെക്കൻമേഖലകളിലായിരിക്കും സർവ്വീസുകൾ കൂടുതൽ മുടങ്ങുക ആഴ്ച അവധി ഒഴിവാക്കി തിരിച്ചെത്താൻ ഡ്രൈവർമാർക്ക് കെ എസ് ആർ ടി സി നിർദ്ദേശം നൽകി സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാൻ ഗതാഗത സെക്രട്ടറിയും കെ

പുതിയ നിർദ്ദേശങ്ങൾ ചർച്ചചെയ്യാൻ കൂടുതൽ സമയം അവശ്യമായതിനാൽ വീണ്ടും ജനറൽ ബോഡി ചേരുമെന്ന് പ്രസിഡന്റ് മോഹൻലാൽ അറിയിച്ചു

തുടർച്ചയായ അഞ്ച് വിജയത്തിനു ശേഷം ഇത്തവണ ഓറഞ്ച് ജേഴ്സിയിൽ ഇറങ്ങിയ ഇന്ത്യയ്ക്ക് പരാജയം

ഓപ്പണർമാരായ ജോണി ബെയർസ്റ്റോയുടെ സെഞ്ചറി മികവിലാണ് ഇംഗ്ലണ്ട് കൂറ്റൻ സ്കോറിലെത്തിയത്

രണ്ടാംവിക്കറ്റിൽ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി കൂട്ടുകെട്ട് വിജയത്തിനുള്ള വഴിയൊരുക്കി

പിന്നീടെത്തിയ ഋഷഭ് പന്ത്ഹാർദിക് പാണ്ഡ്യ ധോണി എന്നിവർ ജയത്തിനായി ശ്രമിച്ചെങ്കിലും സ്കോർ മതിയായ നിരക്കിൽ ഉയർത്താനായില്ല

ന്യൂസ് ഡെസ്ക് ആകാശവാണി

റോജർ ഫെഡറർ രണ്ടാം സീഡും റാഫേൽ നദാൽ മൂന്നാം സീഡുമാണ് വനിതാ വിഭാഗത്തിൽ ആഷ്ലി ബാർട് ആഞ്ചലിക് കെർബർ വീനസ് വില്യംസ് സെറീന വില്യംസ് എന്നിവരും കളത്തിലിറങ്ങുന്നു

ഇന്ന് വടക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് കോഴിക്കോട് കണ്ണൂർ കാസർകോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് നാളെ കൊല്ലം ഇടുക്കി കോട്ടയം മലപ്പുറം ജില്ലകളിലും മഴയുണ്ടാകും ഇന്ന് കർണ്ണാടക തീരത്ത് മൂന്ന് മുതൽ മൂന്നര മീറ്റർ വരെ തിരമാലകൾ ഉയരും മാംഗളൂർ കാർപാർ തീരങ്ങളിൽ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശമുണ്ട് കേരളത്തിന്റെ വടക്കൻ മേഖലകളിലും കടൽ പ്രക്ഷുബ്ധമാകും

തമിഴ്നാട് ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റിനും സാദ്ധ്യതയുണ്ട്